ത്രിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും

പാകിസ്ഥാൻ തീവ്ര്വാദം പ്രോത്സാഹിപ്പിക്കുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കേ വരുമെന്ന് കരസ്പേനി മേധാവി

അമിത്ഷായുടെ പ്രസ്താവന നിയമവൃവസ്ഥയ്ക്ക് എതിരെയുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്തി

ശ്രീലങ്കയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു

നാളെ ആരംഭിക്കുന്ന പതിമൂന്നാമത് ഇന്തൃ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ജപ്പാനിൽ എത്തിയത്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബെയുമായുള്ള അഞ്ചാമത്തെ വാർഷിക ഉച്ചകോടിയാണിത് ഇത് പന്ത്ര ാം തവണയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇന്ത്യയും ജപ്പാനുമായുള്ള വ്യവസായ നിക്ഷേപ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുമെന്ന് യാത്ര തിരിക്കും മുൻപ് പ്രധാനമന്ത്രി അറിയിച്ചു ആരോഗ്യം കൃഷി സാങ്കേതിക വിദ്യ ദുരന്ത നിവാരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

വാണിജ്യമേഖലയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

ടോക്കിയോയിൽ നടക്കുന്ന മേക് ഇൻ ഇന്ത്യ പരിപാടി ശ്രീ മോദി അഭിസംബോധന ചെയ്യും

പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികൾക്ക് നേരിട്ട് പരിശീലനം നൽകുന്നു ന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

കുൽഗാം ജില്ലയിലെ കുദ്വാനി മേഖലയിലെ ഗാട്ട് ഗ്രാമത്തിലും ഷോപ്പിയാൻ ജില്ലയിലെ ഡി കെ പോരയിലുമാണ് തെരച്ചിൽ ആരംഭിച്ചത് ഈ ര ് മേഖലകളിലും ഭീകരരുടെ സാന്നിധ്യമുടെ ന്ന വിവരത്തെ തുടർന്നാണ് തെരച്ചിൽ നടത്തുന്നത്

ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വിഘടന വാദികൾ പലവിധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ് എന്നാൽ ഇതിനെ അതിജീവിക്കാൻ ഗവൺമെന്റിന് ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ജമ്മുകാശ്മീരിലെ ചില ഗ്രൂപ്പുകൾ വിഘടനവാദികളോടൊപ്പം ചേർന്ന് വഷളാക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പ്രറഞ്ഞു

സംഭവത്തിൽ നാല് നാല് ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടതായും ര ് സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടു ് സൈനികരുടെ വാഹന വ്യൂഹത്തിനെതിരെ മാവോയിസ്റ്റുകൾ വെടി ഉതിർക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശങ്ങളും കേന്ദ്രം പരിഗണിക്കും

ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ ബിൽ ഏറെ സഹായകരമാകുമെന്നും കേന്ദ്രമന്ത്രി ആകാശവാണിയോട് പറ്റഞ്ഞു

ഇതിനായി ഉപഭോക്തൃ സംരക്ഷണ അത്യോറിറ്റി രൂപീകരിക്കാനുള്ള ഉപാധി ബില്ലിലു ്

തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നൽകുന്നവർക്ക് എതിരെ കർശന നടപടി എടുക്കാനും ബില്ലിൽ വൃവസ്ഥ ഉള്ളതായി കേന്ദ്രമന്ത്രി പറഞ്ഞു

ും പരിഗണിക്കും

പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ കണ്ണൂരിൽ ബി ജെ പി ആസ്ഥാന ഉദ്ഘാടനം ചെയ്തശേഷം മന്ദിരം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അടിച്ചമർത്തൽ നയമാണ് സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹം

അപ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ നിന്ന് കോടതികൾ പിൻമാറണമെന്നും അമിത് ഷാ പറഞ്ഞു

തൊഴിലാളികളും പോലീസ് ഉദ്യോഗസ്ഥരും സഞ്ചരിച്ച ബസിന് നേരെയാണ് ആക്രമണം ഉ ായത്

പ്പി എസ് സി മാതൃകയിൽ ഒ

അഴീമതിക്ക് അവസരം നൽകാതെ മെറിറ്റ് പട്ടികയും സംവ്രെണ് പട്ടികയും ഉൾപ്പെടുത്തിയാണ് നിയമന പട്ടിക തയ്യാറ്റാക്കിയതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വൃക്തമാക്കി